നിയമസഭാതെരഞ്ഞെടുപ്പ് നൃടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു

കർശന നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തല

സമയ ഇടവേള വർധിപ്പിച്ച് കേന്ദ്രം

ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹൃത്തായ് ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജ്ൻ ആരോഗൃ യോജനയ്ക്ക് കീഴിൽ ഇത് നടപ്പാക്കി വരികയാള്ണെന്നും അദ്ദേഹം പറഞ്ഞു

വിഷയത്തിലെ ഇന്ത്യയുടെ പുരോഗതിയെ ശ്ലാഘിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിശീലന ഗവേഷണ സ്ഥാപനമായ യുണിടാറിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ഇരു സംസ്ഥാനങ്ങളിലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ആറിനാണ്

ദേശീയ നേതാക്കളെയടക്കം സംസ്ഥാനത്തെത്തിച്ച് പ്രചാരണത്തിന്റെ തിളക്കം കൂട്ടാനുള്ള നീക്കത്തിലാണ് മുന്നണികൾ

ജെ

കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലും കൊല്ലം പുറ്റിങ്ങലിലും ശ്രീ

വൈകിട്ട് പാലക്കാട് കഞ്ചിക്കോട് നടക്കുന്ന റോഡ്ഷോയിൽ പങ്കെടുത്ത ശേഷം ശ്രീ അമിത് ഷാ കോയമ്പത്തൂരിലേക്ക് പോകും

കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറാണ് തിരുവനന്ത്പൂര്ത്ത് പത്രിക പ്രകാശനം ചെയ്യുന്നത്

വോട്ടർപ്പട്ടിക് സംബന്ധിച്ച പരാതികളിൽ ജില്ലാ കളക്ടർമാർ മുഖേന നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വോട്ടർമാരുടെ പേരുകൾ ആവർത്തിക്കുന്നതായും സമാനമായ ഫോട്ടോകളും വിലാസവും വ്യത്യസ്തമായ പേരുകളും ഉള്ള എൻട്രികളും ഒരേ വോട്ടർ നമ്പരിൽ വ്യത്യസ്ത വിവരങ്ങളടങ്ങിയ എൻട്രികളും

വ്യാജ വോട്ടർമാരെ ചേർത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ശബരിമല വിഷയത്തിൽ സൂപ്രീംകോടതി വിധി വന്നാൽ ചർച്ചചെയ്ത് നടപ്പാക്കുമെന്നും മു്ഖ്യമന്ത്രി പറഞ്ഞു ജില്ലയിലെ തിരുവല്ല റാന്നി കോന്നി ്ആറ്മുള അടൂർ എന്നീ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പര്യടനം നടത്തും

ഇടവേള നീട്ടുന്നത് വാക്സിനേഷന്റെ ഫലപ്രാപ്തി വർധിപ്പിക്കുമെന്ന സാഹചര്യത്തിലാണിത്

പല സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചരൃത്തിലാണ് കേന്ദ്ര ആഭൃന്തരമന്ത്രാലയം സെക്രട്ടറി അജയ് ഭല്ല പുതിയ മാർഗനിർദേശം പുറപ്പെടുവിച്ചത് അന്തർസംസ്ഥാന യാത്രകൾ തടയരുതെന്ന് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്

പരിശോധനയിലും കോവിഡ് കേസുകൾ കണ്ടെത്തുന്നതിലും ചികിത്സ ഉറപ്പാക്കുന്നതിലും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കണം കോവിഡ് കേസുകൾ വർധിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് ജില്ലാ ഉപജില്ലാ നഗരം വാർഡ് തലങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാവണം ഇത് ജനങ്ങൾ അന്തർസംസ്ഥാന യാത്രകൾ നടത്തുന്നതോ സാധനസാമഗ്രികൾ മറ്റുസംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതോ തടയാനാകില്ല

രാവിലെ സഭ ചേർന്നപ്പോൾ സഭാധ്യക്ഷൻ ഇത് സംബന്ധിച്ച അനുശോചനപ്രമേയം അവതരിപ്പിച്ചു

തമിഴ്നാട്ടിൽ ഇന്നലെ നടന്ന തിരക്കേറിയ ഇലക്ഷൻ പ്രചാരണത്തിനിടെയാണ് ശ്രീ മുഹമ്മദ്ജാന് മരണം സംഭവിച്ചത്

പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം പിടികൂടിയതാണ് ആഭ്യന്തര വകുപ്പിന് എതിരായ ആരോപണത്തിന് ഇടയാക്കിയത്

സ്ഫോടക വസ്തുക്കേസുമായി ബന്ധപ്പെട്ട് എൻ ഐ

ഇവരെ ചോദ്യം ചെയ്തിരുന്നു

രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ജന്മവാർഷിക ദിനം കൂടി ഇതോടൊപ്പം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു